ഐകൃരാഷ്ട്രസഭയുടെ ക്ലൈമറ്റ് ആക്ഷൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും

ജമ്മുവിലെ കിഷ്ത്വാർ ജില്ലയിൽ മൂന്ന് ഭീകരരെ പൊലീസ് അറസ്റ്റ് ചെയ്തു

യുണീസെഫ് എക്സിക്യുട്ടീവ് ഡയറക്ടറുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനത്തെ ഗാന്ധി സോളാർ പാർക്കിന്റെയും ഗാന്ധി പീസ് ഗാർഡന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവ്വഹിക്കും

ഇന്നലെ ഹൂസ്റ്റണിൽ ശ്രീ നരേന്ദ്ര മോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രമ്പും പങ്കെടുത്ത ഹൌഡി മോദി പൊതു സമ്മേളനത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ നടന്ന ചിന്തൻ ശിവിർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് മുതൽ മൂന്നു വരെ ദശലക്ഷം ടൺ ഉരുക്കാണ് ഇന്ത്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്

ഇതിന്റെ ഭാഗമായി കൂടുത്രി പാചകവാതക സിലിണ്ടറുകൾ നിർമിക്കേണ്ടി വന്നത് ഉരുക്ക് മേഖലയ്ക്ക് ഗുണകരമായതായും മന്ത്രി അറിയിച്ചു

ചെലവ് കുറക്കുന്നതിനാണ് ഗവണ്മെന്റ് മുന്തിയ പരിഗണന നല്കുന്നതെന്ന് ശ്രീ

വികസിപ്പിക്കുമെന്നും ഗതാഗതമേഖലയിൽ പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പകരം എൽ

ജി മെതനോൾ സി

എസ് സൌരോർജ്ജം വൈദ്യുതി എന്നിവയിലേക്ക് മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

മുംബൈയിൽ ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവണ്മെന്റിന്റെ സാമ്പത്തിക നയങ്ങളെ പ്രശംസിച്ച ഭട്നാവിസ് മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞു

സമാധാനപരമായിരുന്നു

എറണാകുളം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചയിലാണ് നാളെ സി

കൊച്ചിയിൽ ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയോഗം ചേർന്നു

ഗവൺമെന്റെന്നും പരമോന്നത കോടതി ഈ സമീപനമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ നിയമലംഘനങ്ങളും പരിശോധിക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു

ചെന്നൈയിൽ ഓഫീസേഴ്സ് ട്രൈയ്ിനിംഗ് അക്കാദമിയിലെ പരിശീലന പരിപാടിയുടെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യയിലേയ്ക്ക് കടത്തുന്നതിന് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സേനയ്ക്ക് അറിയാം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു

എന്നാൽ ഭീകരരൂര് നൽകുന്നവരും തമ്മിലൂള്ള വാർത്താവിനിമയ ബന്ധം വേർപെട്ടുപോയിട്ടുണ്ട് ഇന്ത്യ ചൈന അതിർത്തി മേഖലയിൽ ചില അതിർത്തി ലംഘ്നങ്ങൾ ഉണ്ടായെങ്കിലും സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനാൽ സംഘർഷങ്ങൾ ഒഴിവാക്കപ്പെടുന്നതായും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

രമണയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗബഞ്ച് ബുധനാഴ്ച വാദം കേൾക്കും

എമാരെ അയോഗ്യരാക്കിയ സ്പീക്കർ കെ

കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ രണ്ട് ബിജെപി ആർഎസ്എസ് നേതാക്കളെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നാല് സംഭവങ്ങളിൽ ഇവർ പങ്കാളികളായിരുന്നതായും പോലീസ് അറിയിച്ചു കിഷ്ത്വാർ സ്വദേശികളായ നിസ്സാർ അഹമ്മദ് ഷേഖ് നിഷാദ് അഹമ്മദ് ആസാദ് ഹുസ്സൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്

അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പേരുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ പിസ്റ്റളുകളും റൈഫിളും മറ്റ് ആയുധങ്ങളും കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു

ഖലീൽ അഹമ്മദ്ദ് ിഎന്നയാളുടെ വീട്ടിൽ നിന്നാണ് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന വെടിമരുന്ന് രണ്ടു കണ്ടെത്തിയതെന്നും ഇയാളെ കണ്ടെത്താനായിട്ടില്ലന്നും വക്താവ് അറിയിച്ചു

ഡിമോവ് പൊലീസ് സ്റ്റേഷൻ പരിധിയിലെ തോറ മേഖലയിൽ രണ്ടു വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്

അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി